ജമ്മു കാശ്മീരിലെ സാംബാ ജില്ലയിൽ അന്താരാഷ്ട്ര അതിർത്തിയിലുണ്ടായ വെടിവെയ്പിൽ ഒരു അസ്റ്റിസ്റ്റന്റ് കമാന്റന്റ് ഉൾപ്പെടെ നാല് ബി എസ്

റഷ്യയിൽ നടക്കുന്ന ഉമഖനോവ് മെമ്മോറിയൽ ടൂർണമെന്റിൽ ഇന്തൃയ്ക്ക് ഒരു സ്വർണവും രണ്ടു വെള്ളിയും

എ ഗവൺമെന്റിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളുടെയും വിളിച്ചു അജണ്ടയുടെയും അവലോകനം യോഗത്തിൽ ശ്രീ

പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്ന നിർണായക യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ കേന്ദ്ര മന്ത്രിമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കർഷകരുടെ ദുരവസ്ഥയും വിവിധ സംരംഭങ്ങളിലൂടെ കർഷകർക്ക് ആശ്വാസമെത്തിക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും പ്രധാൻമന്ത്രി ജൻ ഔഷധി യോജന ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ഫസൽ ബീമ യോജന പ്രധാൻമന്ത്രി സ്റ്റാർട്ട് അപ്പ് മുലധന പദ്ധതി ഉജ്ജല യോജന മുദ്രായോജന എന്നിവയുൾപ്പെടെയുള്ള പദ്ധതികൾ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും

നിർമാണ മേഖലയിലും തീരുമാനം ഉണർവേകും

ഇന്ധനവിലയിലും പഴം പച്ചക്കറി മേഖലയിലുമുണ്ടായ വിലക്കയറ്റമാണ് നിരക്ക് വർധനയ്ക്ക് അടിസ്ഥാനം

ജെ

സി

എന്നാൽ ബീഡ് ജില്ലയിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗങ്ങളെ സസ്പെന്റ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവ് വന്നതിനാൽ വോട്ടെണ്ണൽ മറ്റിവയ്ക്കുകയായിരുന്നു

ജെ

സി പി ഒരു സീറ്റ് നിലനിർത്തി

കുളു ജില്ലയിലെ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൌണ്ടനറിംഗ് ആൻഡ് അലൈഡ് സ്പോർട്സിൽ രണ്ട് ദിവസം നീളുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വകയിരുത്തിയിട്ടുള്ളതായും മന്ത്രി ഇന്ത്യയുടെ ഭാവി വിനോദസഞ്ചാര മേഖലയിലാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അൽഫോൺസ് കണ്ണന്താനം അറിയിച്ചു

ടി സി ഹോട്ടൽ ശൃംഖലയ്ക്കുവേണ്ടി തട്ടിപ്പുനടത്തിയ കേസിലാണ് നടപടി

എൻഫോഴ്സ്മെന്റിന്റെ ഡൽഹി സോണൽ ഓഫീസ് ഒന്നിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേരിൽ ഏറ്റെടുക്കൽ നോട്ടീസും ഈ ഭൂമിയിൽ സ്ഥാപിച്ചു

കഴിഞ്ഞവർഷം ജൂലൈയിലാണ് ലാലു പ്രസാദിനെയും കുടുംബാംഗങ്ങളെയും പ്രതിചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്

ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിരവധി നടപടികളാണ് ഭരണകൂടം കൈക്കൊള്ളുന്നത്

ആദിവാസി ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡി

പോർട്ട് ബ്ലെയറിലും വൻകരയിലെ മറ്റ് കലാലയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിനായി പുരാതന ഗോത്രവർഗ്ഗങ്ങളിലെ വിദ്യർഥികൾക്ക് മാസംതോറും ആയിരം രൂപ ധനസഹായം നൽകുന്നതായും ശ്രീ

സെക്ടറിലെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് രാംനാഥ് ചാംലിയാലിലെയും നാരായൺപൂരിലെയും ബിഎസ്എഫ് പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സേന വെടിയുതിർത്തതെന്ന് ബിഎസ്എഫ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു ബിഎസ്എഫ് സേന തിരിച്ചടിച്ചതിനെ തുടർന്ന് പുലർച്ച രണ്ട് മണിവരെ വെടിവയ്പ് തുടർന്നു

ചിദംബരത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരായ വിലക്കൽ നടപ്ടികളുടെ രേഖകൾ ഹാജരാക്കാൻ മദ്രാസ് ഹൈക്കോടതി ആദായ നികുതി വകുപ്പിനോട് നിർദ്ദേശിച്ചു തങ്ങൾക്കെതിരായ നടപടികൾക്ക് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്

ചിദംബരത്തിന്റെ മകൻ കാർത്തിയുടെ ഉടമസ്ഥതയിലുള്ള ചെസ് ഗ്ലോബൽ അഡ്വൈസറി ചിദംബരത്തിന്റെ ഭാര്യ മരുമകൾ എന്നിവരടക്കമുള്ളവരാണ് ഹർജി നൽകിയത്

നീരവ് മോദി ബ്രിട്ടനിലുണ്ടെന്ന വാർത്തകൾക്ക് ബ്രിട്ടൻ സ്ഥിരീകരണം നൽകിയ സാഹചര്യത്തിലാണ് പ്രത്യേക കോടതി ജഡ്ജി സൽമാൻ അസ്മി നീരവ് മോഡിയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പത്തുപേർക്കെതിരെ വാറണ്ട് കഴിഞ്ഞമാസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ചത്

ബി

നീരവ്മോഡിയുടെ സ്ഥാപനത്തിലെ നാല് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ജാമ്യഹർജി നൽകിയത്

നാളെ രാത്രി എട്ടരയ്ക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്യിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ ആദ്യ വിസിൽ മുഴങ്ങും

ഫുട്ബോൾ മാമാങ്കത്തിന് പന്തുരുളാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് ആതിഥേയരായ റഷ്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തിന് ആദ്യ വിസിൽ മുഴങ്ങും പിന്നെ ഒരുമാസം കായികപ്രേമികളുടെ കണ്ണും മനസും റഷ്യയുടെ പുൽമൈതാനങ്ങളിൽ മേഞ്ഞുനടക്കും

നിലവിലെ ജേതാക്കളായ ജർമ്മനി ഇന്നലെ എത്തി ബ്രസീലും സ്പെയിനും അർജന്റീനയും ഫ്രാൻസുമെല്ലാം ചേരുന്ന വൻ പടയുടെ ആവേശം റഷ്യയിലെ തെരുവുകളിൽ നിന്നും ലോകത്തിന്റെ മുക്കിലും മൂലയിലുമെത്തിക്കഴിഞ്ഞു സന്നാഹമത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രിയതാരങ്ങളെല്ലാം കഠിന പരിശീലനത്തിലാണ് റഷ്യയിലെ തണുപ്പൻ കാലാവസ്ഥ താരങ്ങളുടെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ആരാധകർ

താരങ്ങളെയും കളി കാണാനെത്തുന്നവരെയും റഷ്യൻ ജനത വലിയ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി